ഛത്തീസ്ഗഡ് അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പോളിംഗ് അവസാനിച്ചു

മുസാഫർപൂർ അഭയകേന്ദ്രത്തിലെ ലൈംഗികാരോപണ കേസുമായി ബന്ധപ്പെട്ട് ബീഹാറിലെ മുൻ സാമൂഹൃക്ഷേമവകുപ്പ് മന്ത്രി മഞ്ജുവർമ്മ മജ്ജുഹൽ കോടതിയിൽ കീഴടങ്ങി

ശബരിമലയിൽ പ്രഖ്യാപിച്ചു നിരോധനാജ്ഞ പിൻവലിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ്

ലോകവനിതാ ബോക്സിങ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ എം സി മേരികോം സെമിഫൈനലിൽ കടന്നു

അതിനിടെ മധ്യപ്രദേശിലും മിസോറാമിലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ചൂടുപിടിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിലെ ഛബുവയിൽ പൊതു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു

തങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ രാജ്യത്തെ യുവജനങ്ങൾക്ക് മുദ്രയോജനപോലുള്ള പദ്ധതികൾ സഹായകരമായെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മിസോറാമിൽ ബിജെപി പ്രസിഡന്റ് അമിത് ഷായും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയും പ്രചരണം നടത്തി വരികെയാണ് രാജസ്ഥാൻ തെലങ്കാന തെരഞ്ഞെടുപ്പുകളിലേക്കായി സമർപ്പിക്കപ്പെട്ട നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയും ഇന്ന് നടന്നു

ര കൂടുതൽ വിവരങ്ങളുമായി വീണ മുകുന്ദൻ

ശക്തമായ സുരക്ഷ സംവിധാനങ്ങൾ കോടതി പരിസരത്ത് ഏർപ്പെടുത്തിയിരുന്നു ഹർദേവ് സിംഗ് അവ്താർ സിംഗ് എന്നീ സിക്ക് യുവാക്കളെ കൊലപ്പെടുത്തിയ കേസിൽ നേരത്തെ യശ്പാൽ സിംഗിനെയും നരേഷ് ഷെരാവത്തിനെയും കോടതി കുറ്റക്കാരായി ക ത്തിയിരുന്നു

എന്നാൽ പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം കേസിന്റെ പുനരന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മുസാഫർപൂർ അഭയകേന്ദ്രകേസുമായി ബന്ധപ്പെട്ട് സിബിഐ റെയ്ഡ് നടത്തിയപ്പോഴാണ് ആയുധങ്ങൾ ക ത്തിയത് കഴിഞ്ഞമാസം ഒൻപതിന് ഇവരുടെ മുൻകൂർ ജാമ്യഹർജി പാറ്റ്ന ഹൈക്കോടതി തള്ളിയ ശേഷവും മഞ്ജുവർമ്മയെ പിടികൂടാത്തതിൽ സുപ്രീംകോടതി ബീഹാർ പോലീസിനെ വിമർശിച്ചിരുന്നു കഴിഞ്ഞ മാസം പത്തിന് ഇവരുടെ ഭർത്താവ് ചന്ദ്രശേഖർ വർമ്മു ക്ടോടതിയ്ക്കു മുൻപാകെ കീഴടങ്ങിയിരുന്നു

ഇരു രാജ്യങ്ങളിലെയും രാഷ്ട്രപതിമാർ നടത്തിയ ഉഭയകക്ഷി ചർച്ചകളിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ചയായി വിയറ്റ്നാം ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് രാംനാഥ് കോവിന്ദ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വികസനത്തിന്റെ പുതിയ മുഖമാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളതെന്ന് അഭിസംബോധനാ പ്രസംഗത്തിൽ ശ്രീ കോവിന്ദ് പറഞ്ഞു ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനം നിലനിർത്തേ തിന്റെ ആവശ്യകത ഇരു രാഷ്ട്രങ്ങളും ഊന്നിപ്പറഞ്ഞു പ്രതിരോധം ആണവോർജ്ജം ബഹിരാകാശ ശാസ്ത്ര സാങ്കേതികം ഓയിൽ ആന്റ് ഗ്യാസ് ഭൌതീക സൌകരൃങ്ങൾ കൃഷി നവീന മേഖലകൾ എന്നിവിടങ്ങളിൽ ഉഭയകക്ഷി സഹകരണം വർദ്ധപ്പിക്കാൻ ഇന്ത്യയുംട വിയറ്റ്നാവും തീരുമാനിച്ചു വിദ്യാഭ്യാസം വ്യാപാര വൃവസായം തുടങ്ങിയ മേഖലകളിൽ രാജ്യങ്ങൾ തമ്മിൽ കരാറിൽ ഒപ്പു വെച്ചു

മാനവികതയുടെയും കാരുണ്യത്തിന്റെയും പ്പിശ്ചസാഹോദര്യത്തിന്റെയും മാതൃക മനുഷ്യവർഗ്ഗത്തിന് കാണിച്ചു തന്ന മഹാനാണ് മുഹമ്മദ് നബിയെന്ന് ശ്രീ നായിഡു പറഞ്ഞു പ്രവാചകൻ നൽകിയ അനശ്വരമായ സന്ദേശങ്ങൾ സൌഹാർദ്ദപൂർണ്ണമായ സമൂഹസൃഷ്ടിക്ക് മനുഷ്യർക്ക് വഴികാട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു

കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ റിപ്പോർട്ടിന്മേലുള്ള അലോക് വർമ്മയുടെ മറുപടി ചോർന്ന വിഷയത്തിൽ കോടതി ആശങ്ക പ്രകടിപ്പിച്ചു വിചാരണ തുടങ്ങിയ ശേഷം ര ു തവണ പരമോന്നത കോടതി വാദം കേൾക്കൽ മാറ്റി വച്ചിരുന്നു എന്തിനുമുള്ള വേദിയല്ല കോടതിയെന്ന് കേസ് പരഗണിക്കവെ കോടതി പറഞ്ഞു ജനങ്ങളുടെ നിയമാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനാണ് കോടതി

കൊച്ചിയിൽ ബിജെപി സംസ്ഥാന ഭാരവാഹികളുടെ യോഗത്തിനു ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രമന്ത്രി പൊൻരാധാകൃഷ്ണൻ നാളെ ശബരിമലയിൽ എത്തും

എൻഡിഎ ഗവൺമെന്റ് ഇക്കാര്യം കൃത്യമായി പിന്തുടരുന്നുടെ ന്നും അദ്ദേഹം പറഞ്ഞു മധ്യപ്രദേശിലെ റെവ മേഖലയിൽ തെരഞ്ഞെടുപ്പു റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി വീണ മുകുന്ദൻ

എ്ന്നാൽ ദരിദ്രവിഭാഗത്തിനാണ് ഗവൺമെന്റ് വികുപ്പുകളുടെ സഹായവും പിന്തുണയും വേ തെന്നും പ്രിയാനമന്ത്രി പറഞ്ഞു

എന്നിരുന്നാലും കേന്ദ്രത്തിൽ എൻ ഡി എ ഗവൺമെന്റ് നിലവിൽ വന്നു കഴിഞ് നാലര വർഷക്കാലമാണ് ശിവ്രാജ് സിംഗ് ചൌഹാൻ ഗവൺമെന്റിന് മികച്ച രീതിയിൽ പ്രവർത്തനം കാഴ്ച വയ്ക്കാനായതെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു

സി

പളനിസ്വാമി സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ് ദുരന്തവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ധരിപ്പിക്കാൻ മറ്റെന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് പളനിസ്വാമി അറിയിച്ചു പുതുക്കോട്ടയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയോട് കൂടുതൽ ധനസഹായം ആവശ്യപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു ചുഴലിക്കാറ്റ് ബാധിച്ച ആറ് ജില്ലകളെയും ദു്രന്തബാധിത മേഖലയായി പ്രഖ്യാപിക്കണമെന്ന് ശ്രീ നരേന്ദ്രമോദിയോട് ആവശ്യപ്പെടുമെന്നും പളനിസ്ാമി അറിയിച്ചു

മൻകി ബാത്തിലൂടെ നിരവധി പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ച് ശ്രീ മോദി പൊതുജനങ്ങളുമായി സംവദിച്ചു വരികയാണ്